ജെ അബ്ദുൽ കലാമിന് അഞ്ചാം ചരമ വാർഷിക ദിനത്തിൽ രാജ്യത്തിന്റെ ശ്രദ്ധാഞ്ജലി

ശിവശങ്കറിനെ എൻ ഐ എ കൊച്ചിയിൽ ചോദ്യം ചെയ്യുന്നു

നോയിഡ മുംബൈ കൊൽക്കത്ത എന്നിവിടങ്ങളിലായി മൂന്ന് ഹൈ ത്രൂ പുട്ട് പരിശോധനാ സംവിധാനങ്ങളാണ് രാജ്യത്ത് നിലവിൽ വരുന്നത്

ഈ ലാബുകളിൽ കോവിഡ് ഇതര അസുഖങ്ങൾക്കും പരിശോധന നടത്താനാകും ദേദ ഒരു ദിവസം അഞ്ചു ലക്ഷത്തിലേറെ കോവിഡ് ടെസ്റ്റുകൾ നടത്തി രാജ്യം മികച്ച നേട്ടം കൈവരിച്ചതായി ഇന്ത്യൻ മെഡിക്കൽ ഗവേഷണ കൌൺസിൽ അറിയിച്ചു

തുടക്കത്തിൽ ദിവസം നൂറിൽ താഴെ പരിശോധനകൾ നടത്തിയിടത്ത് നിന്നാണ് അഞ്ച് ലക്ഷത്തിലേറെ പ്രതിദിന ടെസ്റ്റ് എന്ന നേട്ടം മാസങ്ങൾക്കകം രാജ്യം കൈവരിക്കുന്നത്

എറണാകുളം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന ഇടുക്കി രാജാക്കാട് സ്വദേശി സി

വിജയനും മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന തുവ്വൂർ സ്വദേശി ഹുസൈനുമാണ് മരിച്ചത് സ്വകാര്യ ആശുപത്രിയിൽ കാൻസർ ചികിത്സയിലായിരുന്ന വിജയനെ കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു ബംഗളൂരുവിൽ നിന്ന് ദിവസങ്ങൾക്ക് മുമ്പ് മലപ്പുറത്തെത്തിയ ഹുസൈനെ നെഞ്ചുവേദനയെ തുടർന്നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഇന്നലെ മരിച്ച ഇദ്ദേഹത്തിന്റെ സ്രവ പരിശോധനയിലാണ് കോവിഡ് സ്ഥിരീകരിച്ചത്

രുഭ കോട്ടയം മുട്ടമ്പലത്ത് കോവിഡ് ബാധിച്ച് മരിച്ചയാളുടെ മൃതദേഹം സംസ്കരിക്കുന്നത് തടഞ്ഞ സംഭവത്തിൽ നഗരസഭാ കൌൺസിലർ അടക്കം അമ്പതോളം പേർക്കെതിരെ പോലീസ് കേസെടുത്തു കൌൺസിലർ ടി എൻ ഹരികുമാറിനും കണ്ടാലറിയാവുന്ന ഏതാനും പേർക്കുമെതിരെയാണ് കേസ് കോവിഡ് പ്രോട്ടോക്കോൾ ലംഘിച്ച് അനധികൃതമായി കൂട്ടം കൂടിയതിന് പകർച്ചവ്യാധി നിയന്ത്രണ നിയമ പ്രകാരമാണ് കേസെടുത്തത് രുമ വയനാട് തവിഞ്ഞാൽ പഞ്ചായത്തിലെ വാളാട് സമ്പർക്കത്തിലൂടെ ഏഴു പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതായി സൂചന കോഴിക്കോട്ട് മരണാനന്തര ചടങ്ങിൽ പങ്കെടുത്ത് തിരികെയെത്തിയവർക്കാണ് രോഗബാധയെന്നാണ് റിപ്പോർട്ടുകൾ രോഗം സ്ഥിരീകരിച്ചവരിൽ ചിലർ വാളാട് നടന്ന വിവാഹ ചടങ്ങിലും പങ്കെടുത്തിരുന്നതായി സൂചനയുണ്ട് രുര കോവിഡ് വ്യാപിക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമെന്ന് മലപ്പുറം ജില്ലാ കലക്ടർ കെ

ഇന്ന് മുതൽ കണ്ടെയിൻമെന്റ് സോൺ ഒഴികെ എല്ലാ പ്രദേശങ്ങളിലും കടകൾ രാവിലെ ഏഴ് മുതൽ വൈകീട്ട് ആറു വരെ മാത്രമേ തുറന്നു പ്രവർത്തിക്കാൻ പാടുള്ളൂ രുമ കോവിഡ് രോഗവ്യാപനം വർധിക്കുന്ന സാഹചര്യത്തിൽ മലപ്പുറം ജില്ലയിൽ കൂടുതൽ കോവിഡ് ഫസ്റ്റ്ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകൾ സജ്ജമാക്കുകയാണ് ജില്ലാ ഭരണകൂടം കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി എം സുരേഷ്ബാബു

ജില്ലയിൽ സമ്പർക്ക രോഗികളുടെ എണ്ണവും വർധിക്കുകയാണ്

ഒ ശശിധരൻ നൽകുന്ന റിപ്പോർട്ട്

മീൻപിടുത്ത തുറമുഖത്തിലും അഴീക്കൽ ബസ്സ്റ്റാൻഡിലും കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തി രുര കോവിഡ് വ്യാപനം തടയുന്നതിന്റെ ഭാഗമായി കൊല്ലം ജില്ലയിൽ സ്വകാര്യ വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി രജിസ്ട്രേഷൻ നമ്പർ ഒറ്റ അക്കങ്ങളിൽ അവസാനിക്കുന്ന വാഹനങ്ങൾ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിലും ഇരട്ട അക്കങ്ങളിൽ അവസാനിക്കുന്നവ ചൊവ്വ വ്യാഴം ശനി ദിവസങ്ങളിലും മാത്രം സഞ്ചരിക്കാം ദേദ കോവിഡ് പ്രതിരോധത്തിൽ ഗവൺമെന്റ്ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് കെ മുരളീധരൻ എം

ഗവൺമെന്റിന്റെ വീഴ്ച മറച്ചു വെച്ച് മറ്റുളളവരിൽ കുറ്റം ചുമത്തുകയാണെന്ന് അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു

ജെ അബ്ദുൽ കലാമിന് അദ്ദേഹത്തിന്റെ അഞ്ചാം ചരമ വാർഷിക ദിനത്തിൽ രാജ്യത്തിന്റെ ശ്രദ്ധാഞ്ജലി മികച്ച ശാസ്ത്രജ്ഞനും മനുഷ്യനും ജനങ്ങളുടെ രാഷ്ട്രപതിയുമായിരുന്നു ഡോ

രാജ്യത്തെ ജനങ്ങളെ പ്രത്യേകിച്ച് യുവാക്കളെ വാക്കുകളിലൂടെയും പ്രവർത്തിയിലൂടെയും പ്രചോദിപ്പിച്ച നേതാവായിരുന്നു അദ്ദേഹമെന്നും ഉപരാഷ്ട്രപതി ട്വീറ്റ് ചെയ്തു

ദേദ സ്വർണക്കടത്തുകേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനെ എൻ ഐ

ഐ എ യുടെ കൊച്ചി ഓഫീസിൽ രാവിലെ പത്ത് മണിക്കാണ് ചോദ്യം ചെയ്യൽ ആരംഭിച്ചത്

ഐ എ കൊച്ചി യൂണിറ്റിലെ ഉദ്യോഗസ്ഥരോടൊപ്പം ഡൽഹി ഹൈദരാബാദ് എന്നിവിടങ്ങളിൽ നിന്നെത്തിയ ഉദ്യോഗസ്ഥരും അടങ്ങിയ പ്രത്യേക സംഘത്തിന്റെ നേത്വത്വത്തിലാണ് ചോദ്യം ചെയ്യൽ രുമ കഴിഞ്ഞ നാല് വർഷമായി ഐ ടി വകുപ്പിൽ നടന്ന എല്ലാ ഇടപാടുകളും അന്വേഷിക്കണമെന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് കോഴിക്കോട്ട് ആവശ്യപ്പെട്ടു മുഖ്യമന്ത്രി രാജിവെക്കണമെന്നും അദ്ദേഹം പറഞ്ഞു